ആർ

അസ്ത്രംഷാ കപ്പ് ഹോക്കിയിൽ കാനഡയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ഏഴ് ഗോളിന്റെ തകർപ്പൻ ജയം

രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് ഇക്കാര്യം അറിയിച്ചത് ബഹിരാകാശ പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതാണ് മിഷൻ ശക്തി എന്ന് പേരിട്ട ഈ ദൌത്യം നിർണ്ണായക സൈനിക സാഹചര്യങ്ങളിൽ ശത്രുരാജ്യത്തിന്റെ ചാര ഉപഗ്രഹങ്ങൾ തകർക്കുകയാണ് ആന്റി സാറ്റലൈറ്റ് മിസൈലു കളുടെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി തുളസീദ്ദീസ്റ്റ് ഒഡീഷയിലെ ഡോ

അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് മിഷൻ ശക്തു എന്ന് പേരിട്ട മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ഡി

ഒ ആണ് മിസൈൽ വികസിപ്പിച്ചെടുത്തത് ് ഇതോടെ എ സാറ്റ് എന്ന ഉപഗ്രഹ വേധ മിസൈൽ വിജയകരമായി പരീക്ഷിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ലോ എർത്ത് ഭ്രമണപഥത്തിൽ ഉണ്ടായിരുന്ന ഉപഗ്രഹത്തെ മൂന്ന് മിനിട്ട് കൊണ്ട് തകർത്താണ് ദൌത്യം ലക്ഷ്യം കണ്ടതെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു കരയിലും ആകാശത്തും മാത്രമല്ല ബഹിരാകാശത്തു നിന്ന് പോലുമുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമായതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ നിർമ്മിത മിസൈലുകളുടെ ശക്തി വിളിച്ചോതുന്നതാണ് പരീക്ഷണം

അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിരുന്ന നേട്ടം ഇന്ത്യയും സ്വന്തമാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ആർ ഡി

രാജ്യത്തിന്റെ ആകെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ മിഷൻ ശക്തി വിജയിച്ചു എന്നാൽ ഈ കഴിവ് മറ്റൊരു രാജ്യത്തിന് എതിരെ ഉപയോഗിക്കില്ലെന്ന് രാജ്യാന്തര സമൂഹത്തിന് ഉറപ്പ് നൽകുന്നതായും ശ്രീ

സമാധാന ത്തിനും സഹവർത്തിത്വത്തിനും ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു എന്നിവർ ഡി

ഒ യുടെ വിജയത്തിൽ അഭിമാനം കൊള്ളുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പറഞ്ഞു ഉപഗ്രഹ വേധ മിസൈൽ പദ്ധതി യു

എ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചതാണെന്ന് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദൌത്യത്തിന്റ വിജയത്തിൽ ശാസ്ത്രജ്ഞരെ അഭിീ്ഥു്ദിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയ ലക്ഷ്യം വിജയകരമായി കൈവര്ച്ച ശാസ്ത്രജ്ഞരുടെ പേരിൽ രാജ്യമാകെ അഭിമാനം കൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് അനുസൃതമായി നാം ആർക്കും പിന്നിലല്ലെന്ന സന്ദേശമാണ് ശാസ്ത്രജ്ഞർ ലോകത്തിന് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു

ക്രൊയേഷ്യ തലസ്ഥാനമായ സാഗ്റെബിൽ ഇന്ത്യ ക്രൊയേഷ്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ക്രൊയേഷ്യൻ കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് രാഷ്ട്രപതി ക്ഷണിച്ചു ക്രൊയേഷ്യൻ ചേമ്പർ ഓഫ് ഇക്കോണമിയും അസോസിയേറ്റഡ് ചേമ്പർ ഓഫ് കോമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ ദി കോൺഫിഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേമ്പർ ഓഫ് കോമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി എന്നിവ സംയുക്തമായാണ് ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചത്

ആഗോള തൊഴിൽ വിപണിയിൽ മത്സരിക്കത്തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിശ്രമിക്കണം ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യ വളർച്ചയിൽ യുവാക്കളുടെ പങ്ക് അത്യന്താപേക്ഷിതമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

കമ്പനി നിയമവുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതോറിറ്റി കൈകാര്യം ചെയ്യുക

യെസ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന ഓഹരികളും വിറ്റഴിക്കാൻ ഇന്നലെ പ്രത്യേക കോടതി അനുമതി നൽക്ടിയിരുന്നു കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് സ്ത്യൂക്ട്ൾ കണ്ടുകെട്ടിയതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആറി്യിച്ചു

വരണാധികാരിയുടെ ഓഫിസിനുള്ളിൽ സ്ഥാ നാർത്ഥി അടക്കം അഞ്ചുപേർക്കു മാത്രമാണ് പ്രവേശനം ഇതു നിരീക്ഷിക്കാൻ ഡിവൈഎസ്പിയുടെ റാങ്കിൽ കുറയാത്ത പോലി സ് ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫിസറായി നിയമിച്ചിട്ടുണ്ട് ചട്ട ലംഘനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവമായെടുക്കും നാമ നിർദേശ പത്രികയോടൊപ്പം ഇത്തവണ സ്ഥാനാർത്ഥിയുടെ സ്റ്റാ മ്പ്സൈസ് ഫോട്ടോ കൂടി സമർപ്പിക്കണം സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിനു നടക്കും

ഇതോടെ മത്സരിക്കുന്ന അഞ്ച് സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ ബിഡിജെഎസ് പ്രഖ്യാപിച്ചു

കാസർകോട്ട് മുഞ്ചേശ്വരത്ത് ഒരാൾക്ക് സൂര്യാഘാതമേറ്റതായി റിപ്പേർട്ടുണ്ട് ദിവസങ്ങളോളം ചൂട് ഇതേ അവസ്ഥയിൽ ഉയ്ർന്ന്മാൽ സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുക്മെന്ന ആശങ്കയുണ്ട് വേനൽമഴ വൈകുന്നതും പ്രത്യിസ്സന്ധി ഇരട്ടിയാക്കും

മറ്റ് ജില്ലകളിലും ശരാശരി താപനില വർധിക്കുകയാണ്

മൂന്നിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ജപ്പാൻ പോളണ്ടിനെയും കീഴടക്കി